കൊച്ചിയിലെത്തി ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തും

ജെ

റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുണ്ടെന്നാരോപിച്ച് ഇറാൻ പെട്രോകെമിക്കൽ ഗ്രൂപ്പിന് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി

ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും

ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രി ഇന്ന് സന്ദർശനം നടത്തും കൂടുതൽ വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്

മാലിദ്വീപിലും ശ്രീലങ്കയിലൂമാണ് രണ്ടു ദിവസം പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത്

അയൽ രാജ്യങ്ങൾക്ക് പ്രഥമ പരിഗണന എന്നതാണ് രാജ്യത്തിന്റെ നയം പ്രധാനമന്ത്രിയായി രണ്ടാം തവണ ചുമതലയേറ്റ ശേഷമുള്ള ശ്രീ നരേന്ദ്ര മോദിയുടെ ആദ്യ വിദേശ പര്യടനമാണിത് മാലിദ്ധീപ് പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോലിയുടെ ക്ഷണമനുസരിച്ചാണ് സന്ദർശനം

മാലിദ്വീപ് ഇന്ത്യയുടെ മികച്ച നയതന്ത്ര പങ്കാളിയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തലസ്ഥാനമായ മാലെയിൽ മാലിദ്വീപ് പ്രസിഡന്റുമായി ചേർന്ന് ശ്രീ

മാലിദ്വീപിന്റെ പരമോന്നത ബഹുമതി നിഷാൻ ഇസുദ്ദീൻ ശ്രീ

മാലിദ്വീപ് സന്ദർശനം പൂർത്തിയാക്കി നാളെ പ്രധാനമന്ത്രി ശ്രീലങ്കയിലെത്തും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് എല്ലാ പിന്തുണയും നൽകുകയാണെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചെവി കൊടുക്കുക എന്നതാണ് തന്റെ പ്രധാന കർത്തവ്യമെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു വയനാട്ടിൽ വൻ വിജയം സമ്മാനിച്ച ജനങ്ങളോട് നന്ദി പറയാനാണ് രാഹുൽഗാന്ധി വയനാട്ടിലെത്തിയത്

കഴിഞ്ഞ ഏതാനും വർഷ്ങ്ങളാ്യി പോർട്ടലിലൂടെ പൌരന്മാരുടെ അഭിപ്രായംകൂടി ഉൾപ്പെടുത്തിയാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നതെന്ന് ധനമന്ത്രാലയം അറിയിച്ചു

വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല

മോശം കാലാവസ്ഥയെ തുടർന്ന് വ്യോമ നിരീക്ഷണം ഇന്നലെ നിർത്തിവച്ചിരുന്നു

ഭക്ഷ്യവസ്തുക്കളുടെ പാഴാക്കൽ തടയുന്നതിനും എഫി സി ഐ ലെ അഴിമതി തുടച്ചു നീക്കുന്നതിനുമാണ് ഗവൺമെന്റ് ഉയർന്ന പരിഗണന നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ക്യാബിനറ്റ് നിയമന കമ്മിറ്റിയുടേതാണ് തീരുമാനം

ഐ എ ഇന്നലെ അറസ്റ്റ് ചെയ്തു

എ

ഐ എ കസ്റ്റഡിയിൽ വിട്ടു

ഉഭയകക്ഷിബന്ധം വികസന പങ്കാളിത്തം ജല ഊർജ്ജ മേഖലയിലെ സഹകരണം തുടങ്ങിയ വിഷയങ്ങൾ അദ്ദേഹം ചർച്ച ചെയ്തു രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായാണ് കേന്ദ്രമന്ത്രി ഇന്നലെ ഭൂട്ടാനിലെത്തിയത് വിദേശകാര്യ മന്ത്രിയായി ചുമതലയേറ്റ ശേഷമുള്ള അദ്ദേഹത്തിന്റെ ആദ്യ വിദേശ പര്യടനമാണിത്

ഇറാനിലെ ഏറ്റവും വലുതും ആദായകരവുമായ പെട്രോകെമിക്കൽ ഗ്രൂപ്പിന്റെ സാമ്പത്തിക ഇടപാടുകൾ തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയത്

ഈ കമ്പനിയുമായി പങ്കാളിത്തമുള്ള അന്താരാഷ്ട്ര കമ്പനികൾക്കും ഉപരോധം ബാധകമാണെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി

ഇഡ്ലിബിലായിരുന്നു പ്രധാന പോരാട്ടം നടന്നത്

സി ലോക കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെ നേരിടും ്ജന്ത്യ്ൻ സമയം ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് കാർഡിഫിലാണ് മത്സൂർ ആർംഭിക്കുന്നത്

ആദ്യ രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ട് അഫ്ഗാനിസ്ഥാന് ഇന്ന് നടക്കുന്ന മത്സരം നിർണായകമാണ്

രണ്ടു മത്സരങ്ങളിൽ നിന്നും ഇരു ടീമുകളും ഓരോ ജയം നേടിയിട്ടുണ്ട് ഇരു ടീമുകൾക്കും ഒരു പോയിന്റ് വീതം ലഭിക്കും പോയിന്റ് നിലയിൽ ശ്രീലങ്ക മൂന്നാമതും പാകിസ്ഥാൻ നാലാമതുമാണ്

സെമിയിൽ റോജർ ഫെഡററെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തോല്പിച്ചാണ് നദാൽ ഫൈനലിലിലെത്തിയത്

നൊവോക്ക് ജോക്കോവിച്ച് ഡൊമിനിക് തീം രണ്ടാം സെമി ഫൈനൽ വിജയിയാണ് ഫൈനലിൽ നദാലിന്റെ എതിരാളി മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നലെ മത്സരം നിർത്തിവെച്ചിരുന്നു

സിയുടെ മത്സരങ്ങളിൽ വ്യക്തിഗത സന്ദേശങ്ങളോ ലോഗോകളോ വസ്ത്രങ്ങളിലോ ക്രിക്കറ്റ് ഉപകരണങ്ങളിലോ പതിപ്പിക്കാൻ നിയമപ്രകാരം പാടില്ലെന്ന് ഐ

ധോണിയോ ബി സി സിയോ ഗ്ലൌസിൽ പതിപ്പിച്ചിരിക്കുന്ന ബലിദാൻ ബാഡ്ജ് രാഷ്ട്രീയ മത വംശീയ സന്ദേശം പ്രചരിപ്പിക്കുന്നില്ലെന്ന് ബോധ്യപ്പെടുത്തിയാൽ ബാഡ്ജ് പതിപ്പിക്കാൻ അനുവദിക്കുമെന്നും ഐ

കനത്ത മഴയ്ക്ക് സാധ്യ്തയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം നല്കീയ്ക്കിട്ടുണ്ട്

ബ്രക്സിറ്റ് കരാറിൽ പാർലമെന്റിൽ തുടർച്ചയായുണ്ടായ തിരിച്ചടിയെ തുടർന്ന് പ്രധാനമന്ത്രി പദം ഒഴിയാൻ കടുത്ത സമ്മർദ്ദമുണ്ടായിരുന്നു